വാർത്തകൾ വിശദമായി ഇൻഡോ അമേരിക്കൻ ബന്ധങ്ങളിൽ പുതുയുഗപ്പിറവിക്ക് തുടക്കമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തി

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ട്രംപിനെ സ്വീകരിച്ചു

നഗരവീഥികളെല്ലാം തോരണങ്ങൾ ചാർത്തി അലങ്കരിച്ചിട്ടുണ്ട്

ട്രംപ് പങ്കെടുക്കുന്ന മുഖ്യപരിപാടിയായ നമസ്തേ ട്രംപ് നടക്കുന്ന മൊട്ടേര സ്റ്റേഡിയത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകുന്നത് രാവിലെ മുതൽ തന്നെ സ്റ്റേഡിയത്തിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു സ്റ്റേഡിയത്തിലും പരിസരങ്ങളിലുമെല്ലാം അതീവ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കർശന പരിശോധനകൾക്ക് ശേഷമാണ് ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടുന്നത്

ഇന്ത്യയിലേക്ക് മാത്രമായി വരുന്ന ആദ്യ യുഎസ് പ്രസിഡന്റുകൂടിയാണ് അദ്ദേഹം മറ്റെല്ലാ പ്രസിഡന്റുമാരും ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ എത്തിയത്

എസ് പ്രസിഡന്റുമാർ ആദ്യ ഇന്ത്യാ സന്ദർശനത്തിന് അഹമ്മദാബാദിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്ത് ഡോണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരാൻ താത്പര്യത്തോടെ കാത്തിരിക്കുന്നു

കുറച്ച് മണിക്കൂറുകൾക്കകം എല്ലാവരെയും കാണാം എന്നായിരുന്നു ട്രംപിന്റെ ട്വീറ്റ് ഇന്ത്യ താങ്കളെ കാത്തിരിക്കുകയാണെന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ട്വീറ്റ് ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊട്ടിയുറപ്പിക്കാൻ ഇതുവഴി കഴിയുമെന്നും അഹമ്മദാബാദിൽ വെച്ച് ഉടൻ കണ്ടുമുട്ടാമെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് ടെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നാളെ കൂടിക്കാഴ്ച നടത്തും ഹൈദരാബാദ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ വാണിജ്യം ഊർജ്ജം പ്രതിരോധം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിയഷയങ്ങൾ ചർച്ചയായേക്കും ഏതാനും ധാരണാപത്രങ്ങളിലും കരാറുകളിലും ഇരുനേതാക്കളും ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട് ടെട്ടി ബി

എസ് എൻ എല്ലിലെ എല്ലാ യൂണിയനുകളും അസോസിയേഷനകളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്

ഓരോ വർഷവും ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് ആറായിരം രൂപ മുന്ന് തവണകളായി നേരിട്ട് നൽകും

ടെട്ടി പൌരത്വ നിയമഭേദഗതിക്കെതിരെ ശഹീൻബാഗിൽ തുടരുന്ന പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് കോടതി നിയോഗിച്ച സംവാദസംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു

റിപ്പോർട്ട് പരിശോധിച്ച് മറ്റന്നാൾ വാദം കേൾക്കുമെന്ന് ജസ്റ്റിസുമാരായ കെ എം ജോസഫും എസ് കെ കൌളും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു

ടെട തിരുവനന്തപുരം എസ്

ക്യാമ്പിൽ ആയുധങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന പൊലീസുകാരെയാണ് ചോദ്യം ചെയ്യുക രെട ക്രൈംബ്രാഞ്ച് മേധാവി എഡിജിപി ടോമിൻ ജെ തച്ചങ്കരിയും തീവ്രവാദ വിരുദ്ധസേന ഡി ഐ

കുളത്തൂപ്പുഴ സ്റ്റേഷനിൽ എത്തിയ അവർ വെടിയുണ്ടകളും പരിശോധിച്ചു ടെട സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്നും ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയത് ജനങ്ങൾ ജാഗ്രത പാളിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്തരീക്ഷ താപനില രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്

സമാപന സമ്മേളനം മന്ത്രി എ

നഗരവത്കരണം അതിവേഗം നടക്കുമ്പോഴും ഗ്രാമീണ മേഖലയിൽ ഉപയോഗപ്പെടുത്താത്ത വിപണികളുണ്ടെന്ന് പരിപാടിയിലെ ഓപ്പൺഫോറം വിലയിരുത്തി

എൽ ഫുട്ബോളിൽ നാളെ നോർത്ത് ഈസ്റ്റ് യുനൈറ്റെഡ് എഫ് സി ചെന്നൈയിൻ എഫ് സി യുമായി ഏറ്റുമുട്ടും

ടെട സിറാജ് ദിനപത്രം തിരുവനന്തപുരം യൂണിറ്റ് ചീഫ് കെ

ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസ് കോടതി ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് ടെട സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ കുതിപ്പ് തുടരുന്നു

സിദ്ധാർത്ഥശിവ മനോജ് കാന തുടങ്ങിയ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുമായി സംവാദം പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് ടെട്ട സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ രജത ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കരകൌശല ഉൽപന്നങ്ങളുടെ പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട്ട് ഇന്ന് തുടക്കമാകും വൈകീട്ട് മന്ത്രി എ

മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയാവും വൈകീട്ട് സാംസ്കാരിക സായാഹ്നവും ഉണ്ടായിരിക്കും ടെട കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ കാർഡിയോളജി ഔട്ട് പേഷ്യന്റ് വിഭാഗം ഇന്ന് പ്രവർത്തനം ആരംഭിക്കും തിങ്കൾ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഒ

ടെട പണ്ഡിറ്റ് ദീനദയാൽ ഉപാദ്ധ്യായയുടെ ബലിദാന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സമർപ്പണ നിധി സമാരോഹും അനുസ്മരണ സമ്മേളനവും വൈകുന്നേരം കണ്ണൂർ താളിക്കാവ് മാരാർജി ഭവനിൽ നടക്കും

ജെ

ദേശീയ സമിതി അംഗം സി

പത്മനാഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ടെടി കണ്ണൂർ കൊറ്റാളിയിൽ നിർത്തിയിട്ട ഗുഡ്സ് ഓട്ടോ കത്തി നശിച്ചു

മാലൂർ ശിവപുരത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കും കത്തി നശിച്ചു വെമ്പടിത്തട്ടിൽ സ്വദേശിയുടെതാണ് ബൈക്ക് ടെട ഓഹരി സൂചികകളിൽ നഷ്ടത്തോടെ തുടക്കം